ശക്തിപ്പെടുത്തുന്നതിനും നടപടി ക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി

കേരള കർണ്ണാട്ട്ക അന്തർ സംസ്ഥാന പാതയിലെ ന് കണ്ണൂർ ഇരിട്ടീ മാക്കൂട്ടം റോഡിലുള്ള ഗതാഗതം പുനസ്ഥാപിക്കുന്നതിന് നടപടികൾ പുരോഗമിക്കുന്നു

പ്രധാനമന്ത്രി നവാസ് ഷെരിഫിന് പത്ത് വർഷം തടവ്

ഇന്ന് തുടക്കം ആദ്യ മത്സരത്തിൽ ഉറുഗ്വേ ഫ്രാൻസിനെതിരെ

രാജ്നാഥ് സിംഗ് സ്വദേശികൾക്കും വിദേശികൾക്കും വിസ എമിഗ്രേഷൻ ചട്ടങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടിക്രമങ്ങൾ ലഘുകരിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കൊച്ചിയിൽ എമിഗ്രേഷൻ വിസ സംബന്ധിച്ച പാർലമെന്ററി കൂടിയാലോചന സമിതിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യാത്രാ രേഖയുള്ള യഥാർത്ഥ വിദേശ സഞ്ചാരികൾക്ക് രാജൃത്ത് പ്രവേശിക്കാനുള്ള നടപടി ക്രമങ്ങൾ ലഘൂകരിക്കേണ്ടതുണ്ട്

എല്ലാ പ്രധാന വിമാനത്താവളങ്ങളിലും എമിഗ്രേഷൻ നടപടികൾ ദ്രുതഗതിയിലാക്കാൻ കൂടുതൽ കൌണ്ടറുകൾ തുറക്കും ആഭ്യന്തര സഹമന്ത്രി ഹൻസ് രാജ് ആഹിർ പാർലമെന്റ് അഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു

ശൈലജ ആയുർവേദം സിദ്ധ യൂനാനി യോഗ നാച്യുറോപ്പതി എന്നീ വിഭാഗങ്ങളുടെ ചികിത്സാ സമ്പ്രദായങ്ങളെ ഏകോപിക്കുന്നതാണ് ഭാരതീയ ചികിത്സാ സമ്പ്രദായം അഥവാ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഭാര തീയ ചികിത്സാ സമ്പ്രദായങ്ങളെ പരിപോഷിപ്പിച്ച് ജന ങ്ങൾക്ക് മികച്ച ചികിത്സാ സേവന്റും ലഭൃമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും തുക അനുപ്പിച്ചത്

രാജു പറഞ്ഞു തിരുവനന്തപുരം അരിപ്പയിലെ വനപരിശീലന കേന്ദ്രത്തിൽ ട്രെയിനിംഗ് പൂർത്തിയാക്കിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി ട്ടടടടടടടടടട അഭിമന്യൂ എറണാകുളം മഹാരാജാസ് കോളജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന ത്തികൾക്കായുള്ള തിരച്ചിൽ ഉൌർജ്ജിതം എട്ടു പ്രതികൾക്കായി വിമാനത്താവളങ്ങളിൽ പോലീസ് ജാഗ്രതാ നിർദേശം നൽകിയിട്ടുണ്ട് പ്രതികളിൽ ഒരാളെ കണ്ടെത്തുന്നതിനായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു കൊലപാതകത്തിൽ പങ്കാളികളായ ദ പേരാണ് പോലീസ് പിടിയിലുള്ളത് സംസ്ഥാനത്തിന്റെ പുറത്തേക്കും തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്

കൃകഴിഞ്ഞമാസം ആദ്യം ഉണ്ടായ കനത്ത മഴയിലു്ം ഉരുൾപൊട്ടലിലും റോഡ് തകർന്നതിനെ തുടർന്നാണ് ഗതാഗതം പൂർണമായും നിർത്തിവച്ചത് കണ്ണൂരിൽ നിന്ന് വിരാജ്പേട്ട മൈസൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിലേക്കുള്ള എളുപ്പ വഴിയാണ് മാക്കൂട്ടം ചുരം റോഡ് അതിർത്തി ജില്ലയായ കുടഗിലെ വൃാപാരവും ഗതാഗതം നിരോധിച്ചതോടെ മന്ദഗതിയിലാണ് വാഹനങ്ങൾ മാനന്തവാടി വഴിയാണ് ഇപ്പോൾ തിരിച്ച് വിട്ടിട്ടുള്ളത്

ലോകകപ്പ് ഫുട്ബോളിലെ കാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം

സുധാകരൻ നിർദ്ദേശം നൽകി ബൈ പാസിന്റെ ഭാഗമായ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങളുടെ സ്റ്റീൽ ഗിർഡറുകൾ ലഭിക്കുന്നതിന് കാലതാമസുണ്ടാകു ്റ് മെന്നതിനാൽ ഗ്രേഡ് മാറ്റി ഉപയോഗിക്കാൻ റെയിൽവേ യിൽ നിന്നു അനുമതി ലഭിച്ചതായും ഇതനുസരിച്ചുള്ള പണി ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു

പനി ഛർദ്ദിൽ വയറിളക്കം തുടങ്ങിയ രോഗങ്ങളുമായി രാത്രിയിൽ തീരദേശവാസികൾ ആശ്രയിക്കുന്നത് വലിയ തുറ ആശുപത്രിയിലാണ്